വായുസേന ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തും

ഓണക്കിറ്റ് ഓണത്തിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സൌജന്യ പലവൃഞ്ജന കിറ്റുകളുടെ വിതരണം ആരംഭിച്ചു

ചെന്നിത്തല കത്ത് കോവിഡ് ബാധിതരുടെ ് ഫോൺകോൾ വിവരങ്ങൾ അവരുടെ അറിവില്ലാതെ പോലീസ് ശേഖരിക്കുന്നത് മൌലീകാവകാശങ്ങളുടെ ലംഘനമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി ഒരു വൃക്തിയുടെ സ്വകാര്യത ഇന്ത്യൻ ഭരണഘടനാ ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട് രോഗികളുടെ യാത്ര വിവര ങ്ങൾ മനസിലാക്കാനെന്ന പേരിൽ നടത്തുന്ന ഈ നിയമലംഘ നം പിൻവലിക്കണമെന്ന് ശ്രീ ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു